ബംഗ്ലാദേശിൽ പാർ്ലമെന്റ് വോട്ടെടുപ്പ് തുടരുന്നു

കനത്ത സുരക്ഷ

പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി അനിൽ കുമാർ ചേരുന്നു വോയിസ് സൌരോർജ്ജം കാലാവസ്ഥാ വ്യതിയാനം എന്നീ രംഗങ്ങളിലൂടെ ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കൂട്ടായ പ്രവർത്തന ഫലമായി ബിസിനസ് രംഗത്ത് അഭൂതപൂർവമായ വളർച്ച നേടിയെടുക്കാനും ബിസിനസ് സൌഹൃദ അന്തരീക്ഷം സംജാതമാകുവാനും രാജ്യത്തിന് കഴിഞ്ഞിട്ടുള്ളതായി മൻ കി ബാത്തിൽ തന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പ്രതിരോധ സ്സ്പ്പിധാനങ്ങൾ കൂടുതൽ ശക്തിയാർജിക്കുകയാണ്

കുംഭമേളയുടെ ആഗോള പ്രാധാന്യം പരിഗണിച്ച് കഴിഞ്ഞ വർഷം യുനെസ്കോ ലോകപൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കാര്യം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഓർമിപ്പിച്ചു

വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും കാർ നിക്കോബാറിലെത്തിയ പ്രധാനമന്ത്രി സുനാമി സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു കേന്ദ്രമന്ത്രി മനോജ് സിൻഹ ലഫ്റ്റനറ്റ് ഗവർണർ അഡ്മിറൽ ഡി

ടി

ദ്വീപിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ സെല്ലുലാർ ജയിൽ പ്രധാനമന്ത്രി സന്ദർശിക്കും

ന്യൂഡൽഹിയിൽ നടന്നുടിട്ടാർമത് സംസ്ഥാന ജൈവവൈവിദ്ധ്യ ബോർഡുകളുടെ ദേശീയ സമ്മേളനത്തിൽ മന്ത്രി ഡോ

ആഗോള ജൈവവൈവിദ്ധ്യ നേട്ടങ്ങൾ സാക്ഷാത്ക്കരിക്കുന്നതിനുള്ള പാതയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് ശ്രീ ഹർഷ് വർദ്ധൻ അഭിപ്രായപ്പെട്ടു

അവാമീ ലീഗ് നേതാവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ ഷെയ്ഖ് ഹസീന ധാക്കയിലെ സിറ്റി കോളേജ് സെന്ററിൽ വോട്ട് രേഖപ്പെടുത്തി

ലധികം നിലവിലെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന നാലാം തവണയും ജനവിധി തേടുകയാണ്

ഇന്ത്യ ഓസ്ട്രേലിയ കാനഡ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ നിരീക്ഷകർ ബംഗ്ലാദേശിൽ എത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് മുഖ്യ തെരെഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യ മൂന്ന് നിരീക്ഷരെയാണ് അയച്ചിട്ടുള്ളത്

മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിലെ ദീപങ്ങൾ തെളിയിക്കും

സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു

പനിസാഗർ മുനിസിപ്പൽ വാർഡിൽ സിപിഐഎം സ്ഥാനാർഥിയാണ് വിജയിച്ചത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രിമാർ ദേശീയ സിസ്റ്റ്യൊന നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ സംബൃസ്ഥിക്കും പന്ത്രണ്ടായിരത്തിലധികം പാർട്ടി പ്രവർത്തകരും നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി അനിൽ ജയിൻ മാധ്യമങ്ങളോട് പറഞ്ഞു

മുംബൈയിലെ ബാന്ദ്രയിൽ ഒരു സ്കൂളിന് ശിലാസ്ഥാപനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം വിവേചനങ്ങളില്ലാത്ത വികസനത്തിനാണ് ബി ജെ പി ഗവൺമെന്റ് മുൻഗണന നല്കുന്നത്

തീവ്രവാദികളെന്നു സംശയിക്കുന്ന രണ്ടുപേരാണ് കൃാമ്പ് ആക്രമണം നടത്തിയത് ആർക്കും പരിക്കേറ്റിട്ടില്ല

ഇരുട്ടിലേയ്ക്ക് ഓടി മറഞ്ഞ അക്രമികൾക്കായി സാംസ ജില്ലയ്ക്കു ചുറ്റുമുള്ള അതിർത്തി മേഖലകളിലാണ് തിരച്ചിൽ നടത്തുന്നത്

പഞ്ചാബിലെ അഡംപൂരിലാണ് സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്

ഇരു സംസ്ഥാനങ്ങളിലേയും താപനില അടുത്ത കുറച്ചു ദിവസങ്ങൾ കൂടി ഇത്തരത്തിൽ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ അറിയിച്ചു

ബൂംറയാണ് കളിയിലെ കേമൻ